പ്രചാരണം അവസാനിച്ചു വോട്ടെടുപ്പ് നാളെ

നിർണ്ണയത്തിന് റിപ്പോ നിരക്കടക്കം ബാഹൃഘടകങ്ങൾ പരിഗണിക്കാൻ റിസർവ്വ് ബാങ്ക് മാനദണ്ഡം തയ്യാറാക്കും

പരസ്യ പ്രചാരണം ഇന്നലെ വൈകിട്ട് അവസാനിച്ചു ഇന്ന് നിശ്ശബ്ദ പ്രചാരണമാണ് പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ പ്രചാരണ രംഗത്ത് സജ്ജിവമായിരുന്നു സുതാര്യവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിന് ആവശ്യമായ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ഗോപകുമാർ

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ന്യൂഡൽഹിയിലെ സൻസദ് ഭവൻ പുൽത്തകിടിയിൽ ബാബാ സാഹേബ് അംബേദ്ക്കറിന്റെ പ്രതിമക്ക് മുൻപിൽ ശ്രീ

ബുലന്ദ്ഷ്യൻ കലാപത്തിൽ രണ്ടു പേർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശം

നിർദ്ദേശം നടപ്പാക്കുന്നതിൽ വീഴ്ചയുണ്ടായാൽ മജിസ്ട്രേറ്റുമാരും പൊലീസ് മേധാവികളും വ്യക്തിപരമായ നിലയിൽ ഉത്തരവാദികളാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കലാപത്തിൽ മരിച്ചു പൊലീസ് ഇൻസ്പെക്ടർ സുബോദ് കുമാർ സിംഗിന്റെ കുടുംബാംഗങ്ങളെ അദ്ദേഹം ഇന്ന് നേരിൽ കാണും ഇൻസ്പെക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഗവൺമെന്റിനു കൈമാറും കലാപത്തിൽ മരിച്ച ഗ്രാമീണന്റെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട് കലാപ സംഭവത്തോട് ബന്ധപ്പെട്ട് ഇതുവരെ നാല് പേരെ അറസ്റ്റു ചെയ്തു

ഇന്റ്യൂയിലെ സുപ്രധാനമായ പാപ്പരത്ത നിയമാവലി രാജ്യത്തെ വിദ്ദേശ് നിക്ഷേപകർക്ക് അനുകൂല സാഹചര്യമാണ് ഒരുക്കുന്നത്തെന്ന് കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ഇന്നലെ വൈകിട്ട് ഇതു സ്ട്രബന്ധിച്ച് ചേർന്ന സമ്മേളനത്തിൽ വീഡിയോ കോൺഫ്റ്റൻസിലൂടെ പങ്കെടുക്കുകയായിരുന്നു ശ്രീ

കേന്ദ്ര ധന്മന്ത്രാലയം ഉപദേഷ്ടാവ് സഞ്ജീവ് സൻയാൽ ഇൻസോൾവെൻസി ആന്റ് ബാങ്ക്റപ്സി ബോർഡ് ഓഫ് ഇന്ത്യ ചെയർമാൻ എം

സാഹൂ കോൺസൽ ജനറൽ സന്ദീപ് ചക്രവർത്തി വ്യവസായ പ്രമുഖർ നയവിദഗ്ദ്ധർ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു

ഗുപ്തയ്ക്കും മറ്റ് രണ്ട് ഉദ്യോഗസ്ഥർക്കും ഡൽഹി കോടതി മൂന്നു വർഷം തടവ് ശിക്ഷ വിധിച്ചു കേസിൽ ഉൾപ്പെട്ട എസ് ക്രോഫ കെ

വികാസ് മെറ്റൽഡ് ആന്റ് പവർ ലിമിറ്റഡ് എം ഡി വികാസ് പട്ട്നിയ്ക്കും ഉദ്യോഗസ്ഥൻ ആനന്ദ് മാലിക്കിനും നാല് വർഷത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു കൂടാതെ വികാസ് മെറ്റൽഡ് കമ്പനി ഒരു ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നും വിധിന്യായത്തിൽ പറയുന്നു

തീരുവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും നിയമപരമായി വിവരവും വിജ്ഞാനവും കൈമാറാൻ കരാർ സഹാ്യകമാകും തീരുവ നിയമങ്ങൾ ശരിയായി പാലിക്കാനും ഈ മേഖലയിലെ കുറ്റകൃത്യങ്ങൾ തടയാനും അന്ദ്യേഷ്ണ്ത്തിനും കരാറിൽ വ്യവസ്ഥയുണ്ട് കരാർ ഒപ്പൂവച്ചതുവഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരവും ച്രക്ക് നീക്കവും സുഗമമാകുമെന്ന് ന്യൂഡൽഹിയിൽ പുറത്ത്ചിര്ക്കിയ വാർത്താക്കുറിപ്പിൽ കേന്ദ്ര ധനമന്ത്രാലയം വ്യക്തമാക്കി

റിപ്പോ നിരക്ക് അടക്കം ബാഹൃഘടകങ്ങൾ പരിഗണിച്ച് വായ്പാ പലിശ നിരക്ക് നിശ്ചയിക്കാനാണ് റിസർവ് ബാങ്കിന്റെ നീക്കം ഈ മാസം അവസാനത്തോടെ പുതിയ മാനദണ്ഡങ്ങൾ പ്രഖ്യാപിക്കുമെന്ന് ആർ

ഐ വാർത്താക്കുറിപ്പ് മുംബൈയിൽ അറിയിച്ചു ഓരോ വായ്പാ വിഭാഗത്തിലും ഒരേ മാനദണ്ഡം സ്വീകരിച്ചായിരിക്കും പലിശ നിശ്ചയിക്കുന്നത്

അടുത്ത വർഷം ജനുവരിയോടെ ഇത് നടപ്പാക്കുമെന്ന് ബാങ്കിന്റെ അറിയിപ്പിൽ പറയുന്നു രാജ്യത്ത് ഡിജിറ്റൽ പണമിടപൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ഈ രംഗത്തുണ്ടാക്കുന്നു ത്ർക്കപരിഹാരത്തിന് ഓംബുഡ്സ്മാൻ സേവനം അത്യാവൃശ്യമാണെന്ന് ആർ

കൂടാതെ ബാങ്കിത്ര ധനകാര്യ സ്ഥാപനങ്ങൾ നടപ്പിലാക്കുന്ന അനധികൃത് ഇലക്ട്രോണിക് ഇടപാടുകളിൽ ഉപഭോക്തൃ ബാധ്യത പ്രിമിതപ്പെടുത്താനും റിസർവ്വ് ബാങ്ക് നിർദ്ദേശമുണ്ട്

സാമ്പത്തിക നയ കമ്മറ്റിയിലെ വിലയിരുത്തൽ ഗവൺമെന്റിന്റെ വിലയിരുത്തലുമായി യോജിക്കുന്നതാണെന്നും സാമ്പത്തികകാര്യ വകുപ്പ് സെക്രട്ടറി സുഭാഷ് ചന്ദ്രഗാർഗ് വ്യക്തമാക്കി

അന്നു മുതൽ അടുത്തമാസം എട്ട് വരെ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിലാണ് സ്പീക്കർ യോഗം വിളിച്ചത്

ഗംഗാ ശുചീകരണ പദ്ധതിയിലൂടെ അഞ്ച് വർഷത്തേക്ക് ഇരുപതിനായിരം കോടി രൂപ നീക്കി വച്ചിട്ടുണ്ട്

എഫ്

എ മാർ നിയമസഭാ കവാടത്തിൽ നടത്തുന്ന സത്യഗ്രഹം ഇന്ന് നാലാം ദിവസത്തിലേക്ക് കടന്നു ശബരിമലയിട്ട്ല നിയന്ത്രണങ്ങളും നിരോധനാജ്ഞയും പിൻവലിക്കണ്ടമെന്നാവശ്യപ്പെട്ടാണ് അനിശ്ചിതകാല സത്യഗ്രഹം നട്ടക്കുന്നത്

ജെ

സംസ്ഥാന ജന്ഗുറൽ സെക്രട്ടറി എ

രാധാകൃഷ്ണൻ സെക്രിട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന ഉപവാസ സമരവും നാലാം ദിവസ്മത്തിലേക്ക് കടന്നു ശബരിമല വിഷയത്തിൽ ബി ജെ

നേതാക്കൾക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പിൻവലിക്കണമെന്നും തീർത്ഥാടകർക്ക് അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് നിരാഹാര സമരം

ബി ഐ കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ യൂത്ത് കോൺഗ്രസ്സ് നേതാവുകൂടിയായ അൽജോ കെ ജോസഫിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി മലയാളിയും യൂത്ത് കോൺഗ്രസ്സ് ലീഗൽ സെൽ കോർഡിനേറ്ററുമാണ് അൽജോ

ഈ പ്രദേശങ്ങളിൽ മൽസ്യബന്ധനത്തിനു പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി

രണ്ടാമത്തെ മത്സരത്തിൽ പാകിസ്ഥാനെതിരെ മലേഷ്യ സമനില പാലിച്ചു